സംസ്ഥാനത്ത് വാസയോഗ്യവും അല്ലാത്തതുമായ ഭൂമി വേർതിരിക്കാൻ വിദ ഗ്ദ്ധസംഘത്തെ നിയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി പിണ്റായി വിജയൻ പാലാ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഒരു ക്കങ്ങൾ സജീവമാക്കി മുന്നണികൾ ഭീകര ബന്ധം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത യുവാവിനെയും യുവതിയെയും ചോദ്യം ചെയ്തശേഷം വിട്ടയച്ചു

ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗൂട്ടറസുമായും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണുമായും അദ്ദേഹം ചർച്ച നടത്തി കാലാവസ്ഥാ വൃതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കാൻ ശ്രമം ശക്തിപ്പെടുത്തു ന്നതിന് മാർഗ്ഗങ്ങൾ ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ അന്റോണിയോ ഗുട്ടറസു മായി മോദി ചർച്ച ചെയ്തുവെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ ടിറ്ററിൽ അറിയിച്ചു വ്യാപാരം നിക്ഷേപം പ്രതിരോധം സുരക്ഷ തുടങ്ങിയ മേഖ ലകളിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ടുപോകുന്ന കാര്യ ങ്ങളാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണുമായി നരേന്ദ്രമോദി ചർച്ച ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു കാലാവസ്ഥാ വൃതിയാനം പരിസ്ഥിതി ഡിജി റ്റൽ വിപ്ലവം തുടങ്ങിയ വിഷയങ്ങളിൽ മോദി ഉച്ചകോടിയിൽ സംസാരിക്കും

വൻ സാമ്പത്തിക ശക്തിയെന്ന നിലയിൽ നമുക്ക് ലഭിച്ച അംഗീ കാരമാണിതെന്ന് വിദേശകാര്യമന്ത്രാലയം ന്യൂഡൽഹിയിൽ പറഞ്ഞു ് ് ് ് ് ് ് ് ഐ എൻ എക്സ് മീഡിയ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ മുൻ ധനമന്ത്രി പി ചിദംബരം സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും തനിക്കെതിരെ വിചാരണ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിനും സി ബി ഐ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്ത തിനുമെതിരെ ചിദംബരം സമർപ്പിച്ച പുതിയ ഹർജിയും ജസ്റ്റിസ് ആർ ഭാനുമതി അധ്യക്ഷയായ ബഞ്ചിന്റെ പരിഗണനയ്ക്കുവരും എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് ചിദംബരത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് ഇന്നുവരെ സുപ്രീം ക്യോടതി വിലക്ക് ഏർപ്പെ ടുത്തിയിരുന്നു ചിദംബരത്തിന്റെ സി ബി ഐ കസ്റ്റഡി കാലാവധിയും ഇന്ന് അവ സാനിക്കുകയാണ് സംസ്ഥാനത്ത് വാസയോഗ്യവും അല്ലാത്തതുമായ ഭൂമി വേർതിരിക്കാൻ വിദഗ്ദ്ധ സംഘത്തെ നിയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ലൈഫ് റീ ബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി എറണാകുളം ജില്ലയിലെ വടക്കേക്കരയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽദാനം നിർവ്വ ഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഉരുൾപൊട്ടൽ കടലാക്രമണം എന്നിവ സംബന്ധിച്ച് ദേശീയ അന്താരാഷ്ട്ര വിദഗ്ദ്ധരെക്കൊണ്ട് പഠനം നടത്തു മെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

എറണാകുളം ജില്ല ഇൻഫർമേഷൻ ഓഫീസ് തയ്യാറാ ക്കിയ പ്രളയ അതിജീവനഗാനം രക്ഷാകരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു ് ് ് ് ് ് ് ് സംസ്ഥാനത്ത് പ്രളയത്തിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് പുതിയ രേഖ കൾ വിതരണം ചെയ്യുന്നതിന് ഏകജാലകസംവിധാനം ഏർപ്പെടുത്തണമെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയന് അയച്ച കത്തിൽ രാഹുൽഗാന്ധി ആവശ്യപ്പെട്ടു വയ നാട് മണ്ഡലത്തിൽ നിരവധി കുടുംബങ്ങൾക്ക് റേഷൻ കാർഡുകളും ആധാർ കാർഡുകളും പാൻകാർഡുകളും സ്കൂൾ കോളേജ് സർട്ടിഫിക്കറ്റുകളും ആധാ രങ്ങളും ഉൾപ്പെടെ ഒട്ടേറെ രേഖകൾ നഷ്ടമായിട്ടുണ്ടെന്ന് അദ്ദേഹം കത്തിൽ അറി യിച്ചു പുതിയ രേഖകൾക്കായി പ്രളയത്തിൽപ്പെട്ടവർ നിരവധി ഓഫീസുകൾ കയ റിയിറങ്ങാൻ നിർബന്ധിതരാവുകയാണ് ഇതൊഴിവാക്കാൻ എല്ലാ അപേക്ഷകളും ഒരിടത്ത് സമർപ്പിക്കുന്നതിന് ജില്ലാ കലക്ടറുടെ ഓഫീസിൽ നോഡൽ ഓഫീസറെ നിയോഗിക്കണമെന്നും രാഹുൽ പറഞ്ഞു

വിവിധ സേനാ വിഭാഗങ്ങളും സന്നദ്ധ പ്രവർത്തകരു മാണ് തിരച്ചിലിനിറങ്ങുന്നത് കാണാതായ ഹംസയെ കണ്ടെത്തുന്നതിനാണ് തിര ച്ചിൽ ഇവിടെ അഞ്ചുപേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് ഇതിൽ നാലുപേ രുടെ ബന്ധുക്കൾ തിരച്ചിൽ ഇനിയും തുടരേണ്ടതില്ലെന്ന് അറിയിച്ചിരുന്നു ് ് ് ് ് ് ് ് മലപ്പുറം ജില്ലയിൽ എടക്കര മേലാറ്റൂർ മേഖലകളിലെ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങൾ വിദഗദ്ധസംഘം പരിശോധിച്ചു ് ് ് ് ് ് ് ് കോഴിക്കോട് ഭട്ട് റോഡ് ബീച്ചിൽ കടലാക്രമണത്തെ തുടർന്ന് രണ്ട് കുടുംബങ്ങളെ സമീപത്തെ അംഗൻവാടിയിലേക്ക് മാറ്റി പാർപ്പിച്ചു

ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം ശക്തമായതാണ് മഴ കനക്കാൻ കാരണം കടലിൽ ശക്തമായ കാറ്റിന് സാധ്യതയു ള്ളതിനാൽ തെക്കുപടിഞ്ഞാറൻ അറബിക്കടൽ മഹാരാഷ്ട്രാ ഗോവ കർണാടക തീരം എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ് ് ് ് ് ് ് ് ് പാലാ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഒരുക്കങ്ങൾ സജീവമാക്കി മറ്റന്നാൾ നാമ നിർദ്ദേശപത്രികാ സമർപ്പണം ആരംഭിക്കാനിരിക്കെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബ ന്ധിച്ച ചർച്ചകളിലേക്ക് മൂന്നു മുന്നണികളും കടക്കും കേരള കോൺഗ്രസ് എം ചെയർമാനായിരുന്ന കെ

മാണി പ്രതിനിധാനം ചെയ്ത പാലാ മണ്ഡലം നിലനിർത്താൻ യു ഡി എഫും പിടിച്ചെടുക്കാൻ എൽ ഡി എഫും എൻ ഡി എയും നീക്കങ്ങൾ ശക്തമാക്കും തെരഞ്ഞെടുപ്പുകാര്യം ചർച്ച ചെയ്യാൻ യു ഡി എഫ് നേതൃയോഗം അടിയന്തര മായി രാവിലെ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് എൽ ഡി എഫ് മറ്റന്നാളും യോഗം ചേരും

തീരുമാനിക്കുമെന്നും തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു

ഭീകര ബന്ധം ആരോപിച്ച് പൊലീസ് കസ്റ്റഡി യിലെടുത്ത തൃശൂർ കൊടുങ്ങല്ലൂർ മടവന സ്വദേശി അബ്ദുൾഖാദർ റഹിമിനെയും ബത്തേരി സ്വദേശി നിയായ യുവതിയെയും ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു

ശനിയാഴ്ച കൊച്ചിയിലെ കോടതി പരിസരത്തുനിന്ന് കസ്റ്റഡിയിലെടുത്ത അബ്ദുൾഖാദർ റഹിമിനെ എൻ ഐ എ ലോക്കൽ പൊലീസ് തമിഴ്നാട് പൊലീസ് ക്യൂബ്രാഞ്ച് സംഘങ്ങൾ പ്രത്യേകം പ്രത്യേകം ചോദ്യം ചെയ്യുകയായിരുന്നു അന്വേ ഷണസംഘം ആവശ്യപ്പെട്ടാൽ ഹാജരാകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്

അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുമ്രയാണ് വെസ്റ്റിൻഡീസിനെ തകർത്തത് ഇശാന്ത് ശർമ്മ മൂന്നും മുഹമ്മദ് ഷമി രണ്ടും വിക്കറ്റ് നേടി

വൻ വിജയലക്ഷ്യം പിന്തുടർന്ന വിൻഡീസിന് ഇന്ത്യൻ പേസർമാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല വെള്ളി യാഴ്ചയാണ് അവസാന ടെസ്റ്റ് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ പി

വിനെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അഭിനന്ദിച്ചു രാജ്യ ത്തിന് ഇത് അഭിമാന മുഹൂർത്തമാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ടിറ്ററിൽ പറഞ്ഞു

സിന്ധു വിന്റെ വിജയം തലമുറകൾക്ക് പ്രചോദനമേകുമെന്നും ഇന്ത്യ വീണ്ടും അഭിമാനി ക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു കായികമന്ത്രി കിരൺ റിജ്ജു രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി രാഹുൽഗാന്ധി തുടങ്ങിയവരും സിന്ധുവിനെ അഭിനന്ദിച്ചു

് ് ് ് ് ് ് ് കണ്ണൂർ മൊകേരിയിൽ നടന്ന സംസ്ഥാന വടംവലി ചാമ്പ്യൻഷിപ്പിൽ സീനിയർ പുരുഷ വിഭാഗത്തിൽ കണ്ണൂരിന് കിരീടം ഏകപക്ഷീയമായ രണ്ടു സെറ്റുക ൾക്ക് ഇടുക്കിയെയാണ് കണ്ണൂർ പരാജയപ്പെടുത്തിയത്

പ്രമുഖ തൊഴിലാളി യൂണിയൻ നേതാ വായ എം

ലോറൻസിന്റെ നവതി ആഘോഷം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മുഖ്യമന്ത്രി ഭരണ നൈപുണ്യവും സാംസ്കാരിക മികവും സമന്ദയിച്ച അത്യപൂർവ്വ വ്യക്തിയായിരുന്നു മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ഡി ബാബു പോൾ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

പോലീസ് സേനാംഗങ്ങൾക്കായി ആരംഭിക്കണമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി യാത്രയയപ്പ് സമ്മേളനവും സംസ്ഥാന കമ്മിറ്റി യോഗവും കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ് കാസർകോട് മഞ്ചേശ്വരം കാരുണ്യമാതാ ചർച്ച് ആക്രമിച്ചവർക്കെതിരെ മുഖം നോക്കാതെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഇ

ചർച്ചിൽ സന്ദർശനം നടത്തിയ മന്ത്രി പള്ളി വികാരി ഫാദർ വിൻസന്റ് സൽദാനയുമായി ചർച്ച നടത്തി പ്രത്യേക പൊലീസ് ടീം ഊർജ്ജിതമായി അന്വേ ഷണം നടത്തി വരുന്നതായും ദേവാലയത്തിന് വേണ്ട എല്ലാ സംരക്ഷണവും നൽകു മെന്നും അദ്ദേഹം പറഞ്ഞു

വിജയകാലമാണിതെന്ന് ആർഎസ്എസ് സർസംഘചാലക് മോഹൻ ഭാഗവത് പറഞ്ഞു കോഴിക്കോട് മഹാനഗരത്തിലെ സ്വയംസേവകരുടെ സാംഘിക്കിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹത്തെ വിഘടിപ്പിക്കുകയും ശിഥിലീകരി ക്കുകയും ചെയ്യുന്ന ഭേദഭാവനകൾ അകറ്റി സമൂഹത്തെ ഒന്നായി കാണാൻ മനോഭാവം വളർത്തണ മെന്നും അദ്ദേഹം പറഞ്ഞു

ഗതാഗതം ഇന്ന് ഉച്ചയോടെ പുനഃസ്ഥാപിക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്ന് റെയിൽവെ അറിയിച്ചു മംഗളുരു ബംഗളുരു പാതയിൽ ഇന്നലെ ഉച്ചയോടെ തന്നെ ഗതാഗതം പുനഃസ്ഥാപിച്ചിരുന്നു

ഇന്ന് പുറപ്പെടേണ്ട കൊച്ചുവേളി ലോക മാനൃ തിലക് ദൈവാര സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കൊച്ചുവേളി ചണ്ഡീഗഡ് സംപർക് ക്രാന്തി എക്സ്പ്രസ് എറണാകുളം മഡ്ഗാവ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉൾപ്പെടെ ആറ് ട്രെയിനുകൾ റദ്ദാക്കി

ന്തറിലേക്കും എറണാകുളത്തുനിന്ന് അജ്മീറിലേക്കും ഇന്ന് പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തുമെന്ന് റെയിൽവെ അറിയിച്ചു

ജപ്പാൻ കുടിവെള്ള വിതരണ പ്രൈപ്പ് പൊട്ടിയതിനാൽ ചേർത്തലയിൽ മൂന്നു ദിവസം കുടിവെള്ള വിതരണം തടസ്സപ്പെടും ചേർത്തല നഗരത്തിലും സമീ പത്തെ ആറു പഞ്ചായത്തുകളിലുമാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത്

എമ്മിന്റെയും സി

ടി

കണ്ണൂർ കരിവെള്ളൂരിലെ സി ഗോപാലൻ നിര്യാതനായി

സംസ്കാരം ഇന്ന് രാവിലെ വീട്ടുവളപ്പിൽ നടക്കും

ജനവാസ മേഖ ലയിൽ ഇറങ്ങി ആനകൾ കൃഷികൾ നശിപ്പിക്കുന്നത് പതിവായതോടെ കർഷകർ ആശങ്കയിലാണ് കാട്ടാന ശല്യത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വനംവകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്ന് പ്രദേശവാ സികൾ ആവശ്യപ്പെട്ടു